ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ

ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് മത്സരിക്കുന്ന സി

ഐഐം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു

സ്വന്തം മണ്ണിലെ ഭീകരകർക്കെതിരെ പാകിസ്മാൻ നടപടിയൊന്നും എടുക്കാത്തിനാലാണ് പ്രക ബാലാകോട്ടിൽ ആക്രമണം വേ ിവന്നതെന്ന് വിദ്ദേശ്കാര്യമന്ത്രാലയ വക്താവ് രവീഷ് കുമാർ ഇന്ന് ന്യൂഡൽഹിയിൽ വാർത്താ ലേഖകരോട് പറഞ്ഞു വ്യോമാക്രമണം സൈനിക നടപടിയല്ലെന്നും മറിച്ച് ഭീകരവാദത്തിനെതിരായ നടപടിയാണെന്നും അദ്ദേഹം പറഞ്ഞു അതിർത്തി കടന്നും ഭീകരവാദത്തിനെതിരായി ഇന്ത്യ പ്രവർത്തിക്കുമെന്ന് തെളിയിക്കുന്നതാണ് ബാലാകോട്ടിലെ വ്യോമാക്രമണമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ ഒരു വിമാനംകൂടി പാകിസ്ഥാൻ വെടിവച്ചിട്ടു എന്ന് പറയുന്നു ങ്കിലും എന്തുകൊ ാണ് അതിന്റെ വീഡിയോ പുറത്തുവിടാത്തതെന്ന് അദ്ദേഹം ചോദിച്ചു

വിശദാംശങ്ങളുമായി ലിൻസ വോയിസ് രാജ്യത്ത് ഐക്യവും അഖണ്ഡതയും നിലനിർത്ത ത് അത്യന്താപേക്ഷിതമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

സംഭവത്തിൽ സത്വര നടപടി സ്വീകരിച്ച ഉത്തർപ്രദേശ് ഗവൺമെന്റിനെ ശ്രീ

പിന്നീട് ഗാസിയാബാദിൽ ഒരു ചടങ്ങിൽ സംബന്ധിക്കവേ ബാലക്കോട്ടിലെ വ്യോമാക്രമണത്തിന്റെ തെളിവ് ആവശ്യപ്പെട്ട പ്രതിപക്ഷത്തെ പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി വ്യോമാക്രമണത്തെപ്പറ്റി ആദ്യം ട്ചീറ്റ് ചെയ്തത് പാകിസ്ഥാനാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു പാകിസ്ഥാനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് അദ്ദേഹം പ്രതിപക്ഷ കക്ഷികളോട് ആവശ്യപ്പെട്ടു

ഒരു ദിവസത്തെ സന്ദർശനത്തിന് ഇന്നലെ ഉത്തർപ്രദേശിലെത്തിയ പ്രധാനമന്ത്രി നിരവധി വികസന പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചു

ഗ്രേയ്റ്റർ നോയ്ഡയിൽ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിയോളജിയുടെ ഉദ്ഘാടനം നിർവ്വഹിക്കുന്ന പ്രധാനമന്ത്രി അവിടെ പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാദ്ധ്യയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യും ഡൽഹി മെട്രോ റെയിലിന്റെ നോയ്ഡ ഇലക്ട്രോണിക് നഗര പദ്ധതിയുടെ ഉദ്ഘാടനവും ശ്രീ

നോയ്ഡയിലെ ജനങ്ങൾക്ക് ഡൽഹി മെട്രോയുടെ സേവനം പ്രാപ്തമാക്കുന്നതാണ് പദ്ധതി

നിയമകാര്യ സെക്രട്ടറി അധ്യക്ഷനായ അഞ്ചംഗ സമിതിയെയാണ് കേന്ദ്രമന്ത്രി രവിശങ്കൂർ പ്രസാദ് നിയമിച്ചത്

അഭിഭാഷകർക്ക് മെഡിക്ക്ൽ പ്രിരക്ഷ അഭിഭാഷകരുടെ അകാല മരണത്തിന് ശേഷം ക്ടുടുംബാംഗങ്ങൾക്ക് ലഭിക്കുന്ന പരിരക്ഷ എന്നീ വിഷയങ്ങൾ സമതി പഠനവിധേയമാക്കും മൂന്ന് മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും

വെങ്കയ്യനായിഡു നടത്തിയ ഉന്നതതല ചർച്ചകൾക്കുശേഷം പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം അറിയിച്ചത് തീവ്രവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ കൂട്ടായ പരിശ്രമം അത്യാവശ്യമാണെന്ന് പുൽവാമ ഭീകരാക്രമണം ഒരിക്കൽക്കൂടി തെളിയിച്ചതായി ഉപരാഷ്ട്രപതി പറഞ്ഞു

ര ് രാജ്യങ്ങളും ബഹിരാകാശ രംഗത്ത് പിന്തുടരുന്ന നയങ്ങളെ സംബന്ധിച്ച വിവര കൈമാറ്റവും ഇതോടൊപ്പം നടന്നു ഇന്ത്യയുടെയും ജപ്പാന്റെയും ബഹിരാകാശ സംഘടനകളുടെ സഹകരണം ബഹിരാകാശ സുരക്ഷ ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം അവബോധ പ്രവർത്തനങ്ങൾ ഈ രംഗത്തെ മാനദണ്ഡങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലും ചർച്ചുകൾ നടന്നു

വിട്ടയയ്ക്കുന്നനിതു മുൻപ് ജവാനെ ഭീകരർ മർദ്ദിച്ചതായും എന്നാൽ ഇപ്പോൾ ഇദ്ദേഹം സവസതിയിൽ സുരക്ഷിതമായി എത്തിച്ചേർന്നതായും സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു

അവധിക്കായി വീട്ടിലെത്തിയതായിരുന്നു ശ്രീ

നരേന്ദ്രമോദിയും പാ്ർട്ടിം ദേശീയ അധ്യക്ഷൻ അമിത്ഷായും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു യോഗത്തിലെ ചർച്ചാ വിഷയങ്ങളെക്കുറിച്ച് ഔദ്യോഗിക വാർത്താക്കുറിപ്പ് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്വീകരിക്കേ നിലപാടുകളെ കുറിച്ചും ഒരുക്കങ്ങളെ സംബന്ധിച്ചും ചർച്ച നടന്നതായാണ് സൂചന

അവശേഷിക്കുന്ന സീറ്റിൽ ബി ജെ

എഫിലെ നാല് എം

എ മാരും ആറ് സിറ്റിംഗ് എം

മാരും മത്സരിക്കും ചാലക്കുടിയിൽ ഇന്നസെന്റ് കണ്ണൂരിൽ പി

ശ്രീമതി ആറ്റിങ്ങലിൽ എ സമ്പത്ത് ആലത്തൂരിൽ പി

ബിജു പാലക്കാട് എം

രാജേഷ് ഇടുക്കിയിൽ ജോയിസ് ജോർജ്ജ് എന്നിവരാണ് മത്സരിക്കുന്ന സിറ്റിംഗ് എം

മാർ

അൻവർ പൊന്നാനിയിലും മത്സരിക്കും വടകരയിൽ പി ജയരാജൻ കോട്ടയത്ത് വി

വാസവൻ കൊല്ലത്ത് കെ

ബാലഗോപാൽ മലപ്പുറത്ത് വി

സാനു എറണാകുളത്ത് പി രാജീവ് കാസർഗോഡ് കെ

ഡൽഹി മുംബൈ എക്സ്പ്രസ്വേ യാഥാർത്ഥ്യമാകുന്നതോടെ മേവാത് മേഖലയുടെ വികസനം പൂർത്തിയാകുമെന്നും രാജ്യത്തെ വ്യാവസായിക ഭൂപടത്തിൽ മേഖലയ്ക്ക് സുപ്രധാന സ്ഥാനം കൈവരുമെന്നും ശ്രീമതി

എൽ

കടെ ടുത്ത ക തുക കണക്കിൽപ്പെടാത്തതാണോ എന്നതുമായി ബന്ധപ്പെട്ട് ബല്യാണെ കൂടാതെ മറ്റു ര ുപേരെയും ചോദ്യം ചെയ്തതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു

കേസിൽ തനിക്കും മറ്റുള്ളവർക്കുമെതിരായ കുറ്റപത്രം സമർപ്പിക്കാനുള്ള കാലാവധി നീട്ടികിട്ടുന്നതിനുള്ള നടപടിക്രമങ്ങൾ പ്രോസിക്യൂഷൻ പാലിച്ചിട്ടില്ലെന്നും അതിനാൽ തന്റെ കസ്റ്റഡി നിയമ വിരുദധമാണെന്നും ൂശീ ഗോൺസാൽവസ് ഹർജിയിൽ പറഞ്ഞു